പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ജപ്പാനും ടൂ പ്ലസ് ടൂ ആശയവിനിമയ സംവിധാനം സ്ഥാപിക്കും

രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൊച്ചിയിൽ ഇന്ന് തുടക്കമാവും

പൊതു ജനാരോഗൃ സംരക്ഷണ രംഗത്തെ നൂതനാശയങ്ങൾ സംബന്ധിച്ച അഞ്ചാമത് ദേശീയ ഉച്ചകോടി ഇന്ന് അസ്സമിലെ കാസിരംഗയിൽ

ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്താനും കരാറായി

ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും ഇന്ത്യ ഇറ്റലി ശാസ്ത്ര സാങ്കേതിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും സംബന്ധിക്കും സാങ്കേതികവിദ്യാ കൈമാറ്റം സംയുക്ത സംരംഭം ഗവേഷണ്ണ വികസന പ്രവർത്തനങ്ങൾ വിപണി സൌകര്യം തുടങ്ങിയവയാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്

ഇരുരാജൃങ്ങളിലേയും ജനങ്ങളുടെ പൊതുതാൽപരൃ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് തീരുമാനം

ഖത്തർ സന്ദർശനത്തിലുള്ള വിദേശകാര്യമന്ത്രി സുഷമാസ്വരാജും ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയും ഇതു സംബന്ധിച്ച സ്പ്യൂയിുക്ത കരാറിൽ ഇന്നലെ ഒപ്പുവച്ചു

ജെ

ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബി ജെ പി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിലാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായത് പ്രേംനഗർ മണ്ഡലത്തിൽ നിന്ന് വിജയ് പ്രതാപ് സിംഗും രാമാനുജ് ഗഞ്ജിൽ നിന്ന് രാംകിഷൻ സിംഗും ഡി

പട്ടേൽ ബസ്ന മണ്ലത്തിൽ നിന്നും മത്സരിക്കും അംഗങ്ങളുള്ള നിയമസഭയിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടൂപ്പ് നടത്തുക

ആറിന്റെ കീഴിലെ ദേശീയ പരിസ്ഥിതി എഞ്ചിനീയറിംഗ് ഗവേഷണ കേന്ദ്രത്തിൽ പടക്കങ്ങളിൽ നിന്നുണ്ടാകുന്ന പുക പരിശോധിക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ വന്നതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു

മലിന്റ്റ്കുര്ണ നിയന്ത്രണ അതോറിറ്റി സമൂഹ മാധ്യമങ്ങൾ വഴി പൊതു് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടണം ആവശ്യമെങ്കിൽ അതിനായി മൊബൈൽ ആപ്പോ മറ്റേതെങ്കിലും സംവിധാനമോ ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു

കൊച്ചി കപ്പൽശാലയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഡ്രൈഡോക്കിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന രണ്ടു യാത്രാകപ്പലുകളുടെ നിർമാണോദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവ്വഹിക്കും

ഇതോടെ ആഗോള കപ്പൽ നിർമ്മാണ സംരംഭത്തിൽ ഇന്ത്യയുടെ പങ്ക് രണ്ട് ശതമാനമായി ഉയരും

നിർമാണം പൂർത്തിയാകുന്നതോടെ കിഴക്കനേഷ്യയിൽ എല്ലാ കപ്പൽ അറ്റകുറ്റപ്പണിയ്ക്കുമുള്ള മാരിടൈം ഹബ്ബായി കൊച്ചി മാറും ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൂന്നു ദിവസത്തെ ഉച്ചകോടി മുഖ്യമന്ത്രി ഡ്സർബാനന്ദ സോനോവാളും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ

കേന്ദ്ര ആരോഗ്യ സഹമന്ത്രിമാരായ അശ്വനികുമാർ ചൌബേ അനുപ്രിയാ പട്ടേൽ അസം ആരോഗൃമന്ത്രി ഹിമാനന്ദ ബിശ്വ ശർമ്മ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും

കേന്ദ്ര വനിതാ വികസന മന്ത്രാലയമാണ് ശിശു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാഷ്ട്രപതിയാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്

സംസ്ഥാന ഗവൺമെന്റിന്റെ പുനരധിവാസ നയങ്ങൾക്കനുസൃതമായി മാവോയിസ്റ്റുകൾക്കു വേണ്ട സഹായം നൽകുമെന്ന് പോലീസ് അറിയിച്ചു

മൂന്നു വിക്കറ്റുകൾ വീതം നേടിയ ഖലീൽ അഹമ്മദിന്റെയും കുൽദീപ് യാദവിന്റെയും മികച്ച പ്രകടനമാണ് വിൻഡീസ് ബാറ്റിംഗിന് തടയിട്ടത്

പരമ്പരയിലെ അവസാന മത്സരം അടുത്തമാസം ഒന്നിന് തിരുവന്തപുരത്ത് നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

തിരുവനന്തപുരത്ത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള ഡി ജി പി ഓഫീസിനു മുന്നിൽ നിരാഹാരമിരിക്കും

രാജഗോപാൽ എം

എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എസ്

കൊച്ചിയിൽ അബുദാബി ശക്തി അവാർഡ് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗൾഫ് മേഖലയിൽ പൊതുവിലും യു എ ഇയിൽ പ്രത്യേകിച്ചും മലയാളികളുടെ കൂട്ടായ്മ വളർത്തുന്നതിൽ അബുദാബി ശക്തി കൂട്ടായ്മ പ്രധാന പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു